രാമകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും വാർത്തകൾ വിശദമായി തൃശൂരിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മന്ത്രി കെ

തൃശൂർ ജനറൽ ആശുപത്രിയിൽ നിന്ന് വിദ്യാർത്ഥിനിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രാത്രി തന്നെ മാറ്റിയെന്ന് തൃശൂരിൽ രാത്രി വൈകി ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു

വിദ്യാർത്ഥിനിയുടെ അവസ്ഥ ഗുരുതരമല്ലെന്ന് ഡോക്ടർമാർ വിലയിരുത്തി

രോഗം സംശയിക്കുന്നവരെ നിരീക്ഷിക്കാനും ചികിത്സിക്കാനും മെഡിസിൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെയും ഒരുക്കിയിട്ടുണ്ട് ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർ ഉൾപ്പെടെ ജീവനക്കാർക്കും ആവശ്യമായ സൌകര്യങ്ങളും മരുന്നുകളും പേവാർഡിൽ സജ്ജീകരിച്ചു കേരളത്തിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഇന്നലെ അടിയന്തര റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്നിരുന്നു കൊറോണ വൈറസിനെ ഫലപ്രദമായി എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയം യോഗം ചർച്ച ചെയ്തു തൃശൂരിലെ രോഗിയുമായി സമ്പർക്കത്തിലേർപ്പെട്ടവരെ കണ്ടെത്തി നിരീക്ഷണത്തിൽ വയ്ക്കാനും യോഗം തീരുമാനിച്ചു

സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു

ആരിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്താനായില്ലെന്ന് അധികൃതർ അറിയിച്ചു ദേദ കേരളത്തിൽ കൊറോണ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കണ്ണൂരിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അധ്യക്ഷതയിൽ അടിയന്തിര യോഗം ചേർന്നു സ്വകാര്യ ആശുപത്രികളിലുൾപ്പെടെ ആവശ്യമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകി

ചൈനയ്ക്കു പുറത്തേക്കും വൈറസ് ബാധ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് ലോകാരോഗ്യ സംഘടന മേധാവി ടഡ്രസ് അദാനം ഗബ്രിയേസസ് ജനീവയിൽ പറഞ്ഞു വൈറസ് ബാധ നിയന്ത്രിക്കാൻ ചൈന ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടെങ്കിലും ആരോഗ്യ സംവിധാനങ്ങൾ ദുർബലമായ രാജ്യങ്ങളിലേക്ക് വൈറസ് പടരുന്നത് സ്ഥിതി സങ്കീർണമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു വൈറസ് ബാധ കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുന്നത് തടയാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഗബ്രിയേസസ് ആഹ്വാനം ചെയ്തു

ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് അഭിസംബോധന ചെയ്യുന്നതോടെ സമ്മേളനം തുടങ്ങും സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ന് സഭയിൽ വെക്കും

ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെന്റ് ഇന്നലെ സർവകക്ഷി യോഗം വിളിച്ചിരുന്നു ദരദ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ കാലങ്ങളായി തുടരുന്ന ശീലങ്ങൾ മാറ്റിവെച്ച് നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് അഭിപ്രായപ്പെട്ടു വ്യവസായ പാർക്കുകളിൽ സംരംഭകർക്ക് പൊതുവായി ഉപയോഗിക്കാവുന്ന സൌകര്യങ്ങൾ ഒരുക്കണമെന്നും മന്ത്രി കാസർക്കോട് നുള്ളിപ്പാടിയിൽ പറഞ്ഞു കാസർകോട് ജില്ലയെപ്പറ്റി യുവജനങ്ങളുടെ വികസന സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ സംഘടിപ്പിച്ച സംവാദത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി ദേഴ സിറാജ് ദിനപത്രം തിരുവനന്തപുരം ബ്യൂറോ ചീഫ് കെ

ബഷീർ വാഹനമിടിച്ച് കൊല്ലപ്പെട്ട കേസിൽ പ്രതിയായ ഐ

ശ്രീറാമിന്റെ ആറ് മാസത്തെ സസ്പെൻഷൻ കാലാവധി ഇന്ന് തീരാനിരിക്കെയാണ് നടപടി ശ്രീറാമിനെ ഇന്നലെ സർവ്വീസിൽ തിരിച്ചെടുക്കാൻ ശുപാർശ ചെയ്ത് ചീഫ് സെക്രട്ടറി ടോം ജോസ് അധ്യക്ഷനായ സമിതി റിപ്പോർട്ട് നൽകിയിരുന്നു ഈ ശുപാർശ മുഖ്യമന്ത്രി തള്ളുകയായിരുന്നു ദേദ ഇന്ത്യ ന്യൂസിലാൻഡ് നാലാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരം ഇന്ന്

മലയാളി താരം സഞ്ജു സാംസൺ ഇന്ന് ക്രീസിൽ ഇറങ്ങിയേക്കുമെന്ന് സൂചനയുണ്ട് കഴിഞ്ഞ മൂന്ന് കളികളിലും വിജയിച്ച ഇന്ത്യ അഞ്ച് മത്സര പരമ്പര ഇതിനകം സ്വന്തമാക്കി കഴിഞ്ഞു ദരദ സംസ്ഥാനത്തെ കൌമാരക്കാരായ വിദ്യാർത്ഥികളിലെ മദ്യത്തിന്റെയും ലഹരിമരുന്നിന്റെയും ഉപയോഗം ഇല്ലാതാക്കാൻ സ്കൂളുകളിൽ സംഘടിപ്പിച്ച ഇരുപതിന പ്രബോധന പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടമായി ശരിയോരം സൈക്സത്തോൺ പരിപാടി രാവിലെ തിരുവനന്തപുരത്ത് മന്ത്രി ടി

ലഹരി വിരുദ്ധ പ്പക്കാർഡുകളും തൊപ്പികളുമായി വിദ്യാർത്ഥികൾ അലങ്കരിച്ച സൈക്കിളുകളിൽ ഹരിത പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും പരിപാടിയിൽ പങ്കെടുക്കുക ജില്ലാ കേന്ദ്രങ്ങളിലും സ്കൂൾ കേന്ദ്രങ്ങളിലും എക്സൈസ് ഉദ്യോഗസ്ഥർ സൈക്ലത്തോണിന് നേതൃത്വം നൽകും സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും വിദ്യാർത്ഥികൾക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കും ദുദ ഐഎസ്എൽ ഫുട്ബോളിൽ ഹൈദരാബാദിനെ ബംഗളൂരു എഫ് സി എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു ഇന്ന് മുംബൈ സിറ്റി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും വൈകീട്ട് ഏഴരക്ക് മുംബൈയിലാണ് മത്സരം ദേഴ ഏക് ഭാരത് ശ്രഷ്ഠ് ഭാരത് സോണൽ ഷൂട്ടിങ് ബോൾ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ട് തുടങ്ങി

രുദ ആർദ്രം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളിലെ ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ ഈറ്റ് റൈറ്റ് സ്കൂൾ കേരള ട്വന്റി ട്വന്റി പരിപാടിക്ക് ഇന്ന് തുടക്കമാവും പരിപാടിയുടെ തിരുവനന്തപുരം ജില്ലാതല ഉദ്ഘാടനം രാവിലെ നടക്കും

രാള ദേശീയ തലത്തിൽ പൌരത്വ നിയമ ഭേദഗതിക്ക് എതിരെ പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ യോജിച്ച സമരമാണ് നടത്തുന്നതെന്നും അതാത് പ്രദേശങ്ങളിലെ പ്രാദേശിക സാഹചര്യമനുസരിച്ച് യോജിച്ച സമരം ആവശ്യമാണോയെന്ന് തീരുമാനിക്കുമെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു യോജിച്ച സമരം എല്ലാവരുമായി ആലോചിച്ചാണ് പ്രഖ്യാപിക്കേണ്ടതെന്നും മനുഷ്യ ശ്യംഖല എകപക്ഷീയമായാണ് സിപിഐഎം പ്രഖ്യാപിച്ചതെന്നും ഉമ്മൻ ചാണ്ടി അഭിപ്രായപ്പെട്ടു ദേദ മൃഗസംരക്ഷണ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ കർഷകരെ ആദരിക്കാൻ അടുത്ത ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന കർഷക സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

രാജു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ദേദ ഇടുക്കി കാൽവരിമൌണ്ട് ടൂറിസം ഫെസ്റ്റ് ഇന്ന് സമാപിക്കും പരിപാടിയുടെ ഭാഗമായി രാവിലെ കാൽവരി ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും ആദ്യകാല കുടിയേറ്റ കർഷകരെ ആദരിക്കലും നടത്തും

സംസ്ഥാന ഗവൺമെന്റ് പേരുമാറ്റൽ നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയതായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് അറിയിച്ചു

കണ്ണൂരിനും കോഴിക്കോടിനും ഇടയിൽ ഇപ്പോഴത്തെ സമയത്തിനും സ്റ്റോപ്പുകൾക്കും മാറ്റമില്ല രദേശ സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ആവിഷ്ക്കരിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി നടത്തുന്ന സർവ്വെകൾക്ക് പൌരത്വ നിയമഭേദഗതിയുമായോ ദേശീയ ജനസംഖ്യ രജിസ്റ്ററുമായോ ബന്ധമില്ലെന്ന് ഇടുക്കി ജില്ലാകലക്ടർ എച്ച്

ഉദ്യോഗസ്ഥരോട് ജനങ്ങൾ സഹകരിക്കണമെന്നും കലക്ടർ അഭ്യർത്ഥിച്ചു രദേശ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഹരിത കേരളം ജില്ലാ മിഷന്റെ സഹകരണത്തോടെ തൃശൂർ വിമല കോളേജിൽ ഇന്ന് ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും രാവിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ബീന ജോസ് ഉദ്ഘാടനം ചെയ്യും ഒരു ഇടുക്കി പൂപ്പാറയ്ക്ക് സമീപം തോണ്ടിമലയിൽ ഏലത്തോട്ടത്തിലെ മരങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഉണക്കിയ എൻജിനീയറിംഗ് ബിരുദധാരിയായ സ്ഥലമുടമയെയും ജോലിക്കാരനെയും വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു